ഇന്ന് തുടക്കം

കേരളത്തിൽ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്

പൂൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് യു

പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്ത് ദേശീയ ഇക്ട്രോണിക്സ് നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ആഗോള മത്സരത്തിന് ഇലക്ട്രോണിക് വ്യവസായത്തെ സജ്ജമാക്കുകയാണ് നയം ലക്ഷ്യമിടുന്നത്

കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

ബ്ലിൽ രാജ്യസഭ പാസ്സാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ഒട്ടർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്

കമ്പനി നിയമഭേദഗതി ഇന്ത്യൻ മെഡിക്കൽ കൌൺസ്റ്റിൽ നിയമ ഭേദഗതി എന്നിവയ്ക്കു വേണ്ടിയുള്ള ഓർഡിനൻസുകൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി ഓർഡിനൻസുകൾ രാഷ്ട്രപ്തിയുടെ അംഗീകാരത്തിന് അയച്ചതായി തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കുള്ള ഡി എ യിലും കേന്ദ്ര പെൻഷൻക്കാർക്കുള്ള ക്ഷാമശ്വാസത്തിനും മൂന്നു ശതമാനം വർദ്ധന അനുവദിച്ചു ജനുവരി ഒന്നു മുതൽ ഇത് ബാധകമായിരിക്കും അഹമ്മദാബാദ് മെട്രോ റെയിൽ രണ്ടാം ഘട്ടത്തിനും കേന്ദ്ര മന്ത്രി സഭ അംഗീകാരം നൽകി സ്കൂൾ ഉച്ചഭക്ഷണ വ്യവസ്ഥകൾ പരിഷ്കരിക്കും സ്വദേശി ദർശൻ പരിപാടി തുടരും കൃഷിക്കാർക്ക് ജല സുരക്ഷയും ധന സുരക്ഷയും ഉറപ്പാക്കുന്ന കിസാൻ ഊർജ്ജ സുരക്ഷാ പദ്ധതിയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി അംഗീകാരം നൽകി

പത്ത് കോടി രൂപവരെയുള്ള നിക്ഷേപങ്ങൾക്കായിരുന്നു ഈ ആനുകൂല്യം ലഭ്യമായിരുന്നത്

വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി കിരീടാവക്കാശിയെ സ്വീകരിച്ചു

പ്രധാനമന്ത്രി ്നുരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും നിർഷധി സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പു വയ്ക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനേയും സൌദി കിരീടാവകാശി സന്ദർശിക്കും

വാണിജ്യ രംഗത്തും സജീവ പങ്കാളികളാണ് ഇരുരാജ്യങ്ങളും

ആക്രമണം നടത്തിയ പാക് ഭീകരസംഘടന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇതിനകം ഏറ്റെടത്തിട്ടുണ്ട് തെളിവുകൾ പാകിസ്ഥാനിൽ തന്നെയുണ്ട് പുൽവാമ ആക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്നാൽ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളോട് അനുശോചനം പ്രകടിപ്പിക്കാൻപോലും പാക് പ്രധാനമന്ത്രി തയാറായിട്ടില്ലെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു

ആക്രമണത്തെ അപലപിക്കാനോ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് ദുഖം പ്രകടിപ്പിക്കാനോ പാക് പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിധരിപ്പിക്കാനുള്ള ശ്രമം പാക് പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം കശ്മീരിൽ ഭീകരരെ വളർത്തുന്നതും അവർക്ക് പിന്തുണ നല്കുന്നതും പാകിസ്ഥാനാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്ത കാര്യം പാകിസ്ഥാൻ ബോധപൂർവ്വം വിസ്മരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച വാർത്താ കുറിപ്പിൽ പറഞ്ഞു

ഹീനമായ ഭീകരാക്രമണ്ത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഗവൺമെന്റ് ശേഖരിച്ചു വരികയാണ്റ്

നമാമി ഗംഗാ പദ്ധതി പ്രകാരമുളള നിരവധി സംരംഭങ്ങൾക്കും ജില്ലകളിൽ കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും

ഭക്തിയുടെ നിറവിൽ ആത്മ സമർപ്പണത്തിന്റെ പൊങ്കാല കലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിരന്നു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

വോയ്സ് തിരുവനന്തപുരം നഗരവും സമീപ പ്രദേശങ്ങളും പൊങ്കാലക്കളമായി മാറി സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കായർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്

ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും തുടർന്ന് ലക്ഷക്കണക്കിന് ഭക്തരുടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു നൽകും അതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറും

ക്ഷേത്രം നിയോഗിച്ചിട്ടുള്ള ശാന്തിക്കാർ പൊങ്കാലക്കലങ്ങളിൽ തീർത്ഥം തളിക്കുന്നുത്രോടെ ആത്മ സമർപ്പണത്തിന്റെയും ആത്മ നിർവൃത്തിയുടെയും മഹോത്സവത്തിന് പരിസമാപ്തിയാവും

ഉപ്പാക്കാലയ്ക്ക് പൂർണ്ണമായും ഹരിത ചട്ടം പാലിക്കണമെന്ന് നിർദ്ദേശ്ലാ നൽകിയിട്ടുണ്ട്

സുരക്ഷാ സേനയിലെ കമാൻഡോ സന്ദീപ് കുമാറാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങിയത് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലായിരുന്നു അന്ത്യം

സംഭവം സംബന്ധിച്ച് ഉടൻ ്തുന്നെ പ്രസ്താവന ഇറക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു അമേരിക്ക്ൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപവക്താവ് റോബർട്ട് വല്ലാഡിനോയും ഇന്ത്യ്ക്ക് പൂർണ പിന്തുണ പ്രഖ്യാപിച്ചു ഭീകരാക്രമണത്തിനു പിന്നില്ലെ ശക്തികളെ ഉടൻ തന്നെ പിടികൂടണമെന്ന് അദ്ദേഹർ പാക്കിസ്ഥാനോട് ആവശ്യപ്പെട്ടു

ടൂർണമെന്റിൽ സ്വർണ്ണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതകളാണ് ഇവർ പുരുഷ വിഭാഗത്തിൽ അമിത് പൻഘലും സ്വർണ്ണം നേടി

കുറച്ചു ദിവസമായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലായിരുന്നു

പ്രമുഖ പ്രകൃതി ചിത്രക്കാരൻ അശോക് ദെയ്വാലിക്ക് ആയുഷ്കാല മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരം സമ്മാനിച്ചു അവാർഡു നേടിയ ചിത്രങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കാൻ മന്ത്രാലയ ഉദ്യോഗസ്ഥരോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു